കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് ചൂടേറി അണികൾക്ക് ആവേശം പകർന്ന് ദേശീയ നേതാക്കൾ കേരളത്തിൽ

ഇന്തോനേഷ്യ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്

പരസ്യ പ്രചാരണം സമാപിച്ചു ഇനി നിശ്ര്ബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഒഡീഷയിലും ചത്തീസ്ഖഡിലും വിവിധ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു

ന്യൂസ്ഡസ്ക് ആകാശവാണി

സുരക്ഷാ കാരണങ്ങളാലാണ് നടപടി മണ്ഡലത്തിലെ ക്രമസമാധാന നില സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ സഹായകരമാകില്ലെന്ന സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയും പ്രത്യേക പൊലീസ് നിരീക്ഷകന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

വിദൂര സ്ഥലങ്ങളിലെ ബൂത്തുകളിലേക്ക് പ്ടോളിങ്ങ് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടതായി അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

സംസ്ഥാനത്തെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അവർ അഭിസംബോധന ചെയ്തു

ഇന്നലെ ശ്രീ രാഹുൽ പത്തനാപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു

കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഇന്നലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എറണാകുളം അത്താണി തൃശൂർ ചാലക്കുടി എന്നിവിടങ്ങളിൽ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും

രണ്ടു ദിവസത്തെ പര്യടനത്തിനായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കഗാന്ധി ശനിയാഴ്ച വയ്ന്നാട്ടിലെത്തും

ജെ

സംസ്ഥാന പ്രസിഡന്റ് സത്യപാൽ സിങ് സാത്തിക്കിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് നൽകി

പെർദൌസ് വിസാ ചട്ടങ്ങൾ ലംഘിച്ചതായി ഇമിഗ്രേഷൻ ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തുകയായിരുന്നു പെർദൌസ്

ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയും മുൻ ജനറൽ പ്രബോവോ സുബിയാന്റോയും തമ്മിലാണ് മുഖ്യ മത്സരം

പ്രസിഡന്റ് പദവി മുതൽ താഴെ തട്ടിലേക്ക് വരെയുളള തെരഞ്ഞെടുപ്പാണ് ഒറ്റ ദിവസത്തിൽ നടക്കുന്നത്

വിഡോഡോ ജനകീയനാണെങ്കിലും സുബിയാന്റൊയിൽ നിന്നും കടുത്ത പോരാട്ടം നേരിടേണ്ടി വരുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്

രാജ്യത്തെ പുതിയ പട്ടാള നേതാവ് ലെഫ്റ്റനന്റ് ജനറ്റൽ അബ്ദൽ ഫത്താഹ് അൽ ബുർഹാനാണ് പ്രോസിക്യൂട്ടർ ജനറൽ ഒമർ അഹമ്മദ് മുഹമ്മദിനെ പരിച്ചുവിടാൻ തീരുമാനമെടുത്തത് മുഹമ്മദിന് പകരമായി അൽവലീദ് സയ്യിദ് അഹമ്മദിനെ രാജ്യത്തെ പുതിയ പ്രോസിക്യൂട്ടർ ജനറലായി നിയമിച്ചു പ്രോസിക്യൂട്ടർ ജനറലിനെ പിരിച്ചുവിടണമെന്ന് ഇന്നലെ പ്രക്ഷോപ സംഘടനകളുടെ ഭാഗത്തുനിന്നും ആവശ്യമുയർന്നിരുന്നു എന്നാൽ പട്ടാള ഭരണം അവസാനിപ്പിക്കണമെന്ന വാദവും ശക്തമായി

മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും ചിലയിടങ്ങളിലെ റോഡുഗതാഗതം അപകടകരമായ നിലയിലായി

രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒമ്പത് പേരാണ് ഇവിടെ കൊല്പപ്പെട്ടത്

കനത്ത മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ ഒരു കുട്ടിയുൾപ്പെടെ ഒമ്പതുപേരാണ് ബ്ലൂചിസ്ഥാൻ പ്രവിശ്യയിൽ മരണ മടഞ്ഞത്

കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആലിപ്പഴ വീഴ്ചയും ഇടിമിന്നലും ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്

നഗരത്തിലെ ചിലഭാഗങ്ങളിൽ ഇന്നലെ മഴയുണ്ടായി ഉത്തരേന്ത്യയിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മേഖലയിൽ മഴക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

മത്സരത്തിൽ ചെന്നൈ സൂപ്പ്ൾ കിങ്ങ്സ്സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ജന്മദിനത്തോടനുബന്ധിച്ച് വിശ്വാസികൾ പ്രാർത്ഥനയും പ്രസാദ വിതരണവും ഘോഷയാത്രയും നടത്തും മഹാവീർ ജയന്തി പ്രമാണിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ദേശീയ നഷക്കടമായ ദുരന്തത്തിൽ ഇന്ത്യൻ ജനതയുടെ ഐക്യദാർഢൃം അറിയിക്കുന്നതായി ശ്രീ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് അയച്ച കത്തിൽ വ്യക്തമാക്കി